ഊർജ്ജിതം അണികൾക്ക് ആവേശം പകർന്ന് മുതിർന്ന നേതാക്കൾ പ്രചാരണത്തിൽ

വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമായ് പലസ്ഥീനിയൻ അതോറിറ്റിയുടെ പുതിയ പ്രധാനമന്ത്രിയായി മുഹമ്മദ് ഇസ്തായേഹ് അധികാരമേറ്റു

എൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ആദ്യ ജയം

വോയീസ് പ്രധാനമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ജമ്മു കാശ്മീരിലെ കത്വയിലും ഉത്തർപ്രദേശിലെ അലിഗഡ് മൊറാദാബാദ് എന്നിവിടങ്ങളിലും എൻ

എ സ്ഥാനാർത്ഥികൾക്കുവേണ്ടി പ്രചാരണത്തിനെത്തും

അനിൽ അംബാനിയുടെ കമ്പനിക്ക് നികുതി ഇളവ് നൽകിയ നടപടിയെ റഫാൽ ഇടപാടുമായി ബന്ധപ്പെടുത്തിയുള്ള വാർത്തകൾ തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി

അനിൽ അംബാനിയുടെ കമ്പനിക്ക് നികുതി ഇളവ് ലഭിച്ചു എന്ന് ഫ്രുങ്ക് പിത്രം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് കോൺഗ്ഗ്സിറ്റ്റ് പ്രതികരണം

ഉത്തർപ്രദേശിലെ ഒൻപതും ഹരി യാനയിലെ ആറും മധ്യപ്രദേശിലെ മൂന്നും സ്ഥാനാർത്ഥികളെ യാണ് പ്രഖ്യാപിച്ചത് ഹരിയാനയിലെ അംബാലയിൽ നിന്ന് കുമാരി ഷെൽജയും റോത്തക്കിൽ നിന്ന് സിറ്റിംഗ് എം

ഉത്തർപ്രദേശിലെ ബഹോദിയിൽ നിന്ന് രമകാന്ത് യാദവും ഗാസിയപൂരിൽ നിന്ന് അജി പ്രസാദും ഗോണ്ടയിൽ നിന്ന് കൃഷ്ണ പട്ടേലും മത്സരിക്കും

വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ പ്രവാസികളുമായി സമൂഹമാധ്യമത്തിലൂടെ സംവധിക്കുകയായിരുന്നു അവർ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി ഏറെ മെച്ചപ്പെട്ടുവെന്നും ശ്രീമതി സുഷമസ്വാരാജ് പറഞ്ഞു

ടിഡിപി നേതാവ് എൻ പ്ലന്ദ്രബാബൂനായിഡു തെരഞ്ഞെടുപ്പ് സമിതിയെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ അനുഗമിച്ചവരിൽ ക്രിമിനൽ കേസ് പ്രതീ് ഉൾപ്പടെയുള്ളവർ ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് അയച്ചത് തെരഞ്ഞെടുപ്പ് മെഷീനുകൾ തട്ടിയെടുത്ത കേസിലെ പ്രതിയായ വ്യക്തിയാണ് ചന്ദ്രബാബുനായിഡുവിനൊപ്പം ഉണ്ടായിരുന്നതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി

രാജ്യമെമ്പാടും വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്

വോയിസ് അധകൃതരുടെ അവകാശങ്ങൾക്കു വേണ്ടി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവ് ഭീംറാവു റാംജ്ച് എന്ന ഡോ

സാമ്പത്തിക വിദഗ്ധൻ അഭ്ടിഭ്ടാഷ്കൻ ഭരണഘടനാവിദഗ്ധൻ തുടങ്ങി വിവിധ മേഖലകളിൽ ്തന്റെ മികവു തെളിയിക്കാൻ അദ്ദേഹത്തിനു സാധിച്ചു പ്സാമൂഹിക അസമത്വത്തിനെതിരെ പോരാടിയ അംബേദ്ക്ട്ര ് പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനായി സംവരണം ഉൾപ്പടെ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് പ്രധാന പങ്കു വഹിച്ചു അംബേദ്കറുടെ ജന്മവാർഷികദിനത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ അദ്ദേഹത്തെ അനുസ്മരിച്ചു സ്വാതന്ത്ര്യ സമരത്തിൽ മുന്നിൽ നിന്ന് നയിച്ചു നേതാവാണ് അംബേദ്ക്കർ എന്നും അടിച്ചുമർത്തപ്പെട്ടവരുടെ അവകാശം നേടിയെടുക്കാൻ അംബേദ്ക്കർ പ്രവർത്തനങ്ങൾ നടത്തിയ വിലമതിക്കാനാവാത്താണെന്നും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സന്ദേശത്തിൽ പറഞ്ഞു

ബാബുപോളിന്റെ സംസ്കാരം ഇന്ന്

ഇന്നലെ പുലർച്ചെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം

വിഷുദിനമായ നാളെ ഭക്തർക്ക് വിഷുക്കണിയും ്വീഷ്ടുകൈനീട്ടവും സന്നിധാനത്ത് ഒരുക്കും

യേശുക്രിസ്തു നടത്തിയ ജറുസലേം യാത്രയുടെ സ്മരണകളുമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നു

കർഷകരുടെ കഠിനാധാനത്തിന്റെയും പരിശ്രമത്തിന്റെയും ആഘോഷം കൂടിയാണ് വിളവെടുപ്പുത്സവമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തന്റെ സന്ദേശത്തിൽ പറഞ്ഞൂ പുതുവർഷാരംഭം കുറിക്കുന്ന ആഘോഷങ്ങൾ മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിന്റെ സൂചന എന്ന നിലയിലും കാണാമെന്ന് ഉപരാഷ്ട്രപതി ശ്രീ വെങ്കയ്യ നായിഡു സന്ദേശത്തിൽ വ്യക്തമാക്കി

പ്രസിഡൻഡ് മുഹമ്മദ് അബ്ബാസാണ് ഇസ്തായേഹിനെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തത്

പുതിയ ഗവൺമെന്റ് രൂപീകരണത്തിൽ ഐകൃരാഷ്ട്രസഭ മധ്യേഷ്യൻ പ്രതിനിധി പ്രത്യാശ പ്രകടിപ്പിച്ചു സമാധാന ചർച്ചകൾക്ക് ഗവൺമെന്റ് രൂപീകരണം പ്രതീക്ഷ നൽകുന്നതായി അദ്ദേഹം പറഞ്ഞു

നാല് പേർക്ക് പരിക്കേറ്റു ഇവരിൽ ർണ്ട് പേരുടെ നില ഗുരുതരമാണ് സംഭവത്തെക്കുറിച്ചുള്ള കൂടൂത്ൽ വിവരങ്ങൾ അറിവായിട്ടില്ല

ഇതോടെ ടൂർണമെന്റിൽ ഇന്തൃ അഞ്ച് മെഡലുകൾ നേടി

എൽ ൽ ഇന്നലെ നടന്ന രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ജയം ബാംഗ്ലൂരിന്റെ ഈ സീസണിലെ ആദ്യ ജയമാണിത്